പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി മേള ഉദ്ഘാടനം ചെയ്യും

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി വാർത്തകൾ വിശദമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് തിയ്യതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും സീറ്റ് വിഭജന ചർച്ച ഊർജ്ജിതമാക്കി അടുത്തയാഴ്ച ആദ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങും

എം നേതൃത്വം നൽകുന്ന ഇടത് ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും ബി

പി നേതൃത്വം നൽകുന്ന എൻ

എയും തമ്മിലെ ശക്തമായ പോരാട്ടത്തിനായിരിക്കും സംസ്ഥാനം ഇത്തവണ സാക്ഷ്യം വഹിക്കുക കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ

പിക്ക് ഒരുസീറ്റുമാണ് ലഭിച്ചത് കഴിഞ്ഞ അഞ്ചുവർഷത്തെ ഭരണത്തിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയായിരിക്കും എൽ

കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാനാവുമെന്ന് യു

എഫ് കണക്കുകൂട്ടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ തുണയ്ക്കുമെന്നാണ് ബി

പി വിശ്വസിക്കുന്നത്

ഇതോടൊപ്പം തമിഴ്നാടും പുതുച്ചേരിയും വിധിയെഴുതും

അഞ്ച് സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ മെയ് രണ്ടിനാണ് ദര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോ നവജ്യോത് ഖോസ കന്യാകുമാരി കളക്ടർ എം അരവിന്ദുമായി വിഴിഞ്ഞത്ത് കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ ചെക്ക്പോസ്റ്റുകൾ തീരദേശ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് കളക്ടർമാർ പറഞ്ഞു വാഹന പരിശോധനയും ശക്തിപ്പെടുത്തും ദ്ദേ രാജ്യത്തെ ആദ്യ കളിപ്പാട്ട മേളയ്ക്ക് ഇന്ന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി മേള ഉദ്ഘാടനം ചെയ്യും കളിപ്പാട്ട നിർമ്മാണ മേഖല ശക്തിപ്പെടുത്തുന്നതിനും സ്വയംപര്യാപ്തമാക്കുന്നതിനുമാണ് അടുത്തമാസം രണ്ടുവരെ ദേശീയ കളിപ്പാട്ട മേള സംഘടിപ്പിക്കുന്നത് ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ കളിപ്പാട്ട മേളയ്ക്ക് തുടക്കം കുറിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് ദേദ കുട്ടികളുടെ മാനസിക വികാസത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതിനൊപ്പം മാനസികവും ബൌദ്ധികവുമായ വൈദഗ്ധ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കളിപ്പാട്ടങ്ങൾ സഹായിക്കുന്നു പ്രവർത്തനം മെച്ചപ്പെടുത്തുക മാത്രമല്ല അഭിലാഷങ്ങൾക്ക് ചിറകുകൾ നൽകുന്നവയുമാണ് കളിപ്പാട്ടങ്ങളെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു കുട്ടികളുടെ സമഗ്ര വികസനത്തിൽ കളിപ്പാട്ടങ്ങളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യയിൽ കളിപ്പാട്ട നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകി സുസ്ഥിര ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായത്തിന്റെ മൊത്ത വികസനത്തിനായി സംവാദം പ്രോത്സാഹിപ്പിക്കുവാനും വാങ്ങുന്നവർ വില്പനക്കാർ വിദ്യാർത്ഥികൾ അധ്യാപകർ ഡിസൈനർമാർ ഉൾപ്പെടെ പങ്കാളികളെ ഏകോപിപ്പിക്കാനും നാലു ദിവസം വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ലക്ഷ്യമിടുന്നു

പരമ്പരാഗത ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങൾ പ്ലഷ് കളിപ്പാട്ടങ്ങൾ പസിൽസ് ഗെയിമുകൾ എന്നിവ ഉൾപ്പെടെ ആധുനിക കളിപ്പാട്ടങ്ങളും ഇതിൽ പ്രദർശിപ്പിക്കും കളിപ്പാട്ട രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും പ്രശസ്തരായ ഇന്ത്യൻ അന്താരാഷ്ട്ര സ്പീക്കറുകളുമായി നിരവധി വെബ്ബിനാറുകളും പാനൽ ചർച്ചകളും മേളയിൽ ഉണ്ടായിരിക്കും

മലബാർ മേഖലയിൽ ആദ്യമായാണ് പരമ്പരാഗത പാസഞ്ചർ ട്രെയിനിന് പകരം മെമു സർവീസ് തുടങ്ങുന്നത്

റിസർവ് ചെയ്യാതെ യാത്ര ചെയ്യാവുന്ന സ്പെഷ്യൽ ട്രെയിനുകളായിരിക്കും ഇതെന്ന് റെയിൽവെ അറിയിച്ചു

ദേദ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിലാദ്യമായി പൊങ്കാല ചടങ്ങുകൾ ക്ഷേത്രത്തിൽ മാത്രമായിരിക്കും ഭക്തർക്ക് വീടുകളിൽ പൊങ്കാലയർപ്പിക്കാം

പൊതുസ്ഥലത്ത് പൊങ്കാലയർപ്പിക്കരുതെന്ന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ദര പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇന്ന് പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

ദര പാലക്കാട് മണ്ണാർക്കാട് എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി കോയമ്പത്തൂരിൽ നിന്നും പച്ചക്കറി വണ്ടിയിൽ കൊണ്ടുവരികയായിരുന്ന ആറു ടണ്ണിലധികം ജലാറ്റിൻ സ്റ്റിക്കാണ് പിടികൂടിയത്

പച്ചക്കറി ലോറിയിൽ കടലാസ് പെട്ടികളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി ഗോവയിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്ലേഓഫ് ഉറപ്പാക്കി പോയിന്റ് പട്ടികയിൽ അവർ മൂന്നാം സ്ഥാനത്താണ്

സി ഈസ്റ്റ്ബംഗാൾ എഫ് സിയെ നേരിടും ദേദ ബംഗളുരുവിൽ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിലെ നാലാം മത്സരത്തിൽ കർണാടകം കേരളത്തെ ഒൻപത് വിക്കറ്റിന് തോൽപ്പിച്ചു ടൂർണമെന്റിലെ ആദ്യ മൂന്ന് കളികളിലും വിജയം നേടിയ കേരളത്തിന് നാലാം മത്സരത്തിൽ പ്രകടനം ആവർത്തിക്കാനായില്ല ദേദ ഇരുപത്തഞ്ചാമത് രാജ്യന്തര ചലച്ചിത്ര മേളയുടെ തലശ്ശേരി പതിപ്പിന് ഇന്ന് തിരശ്ശീല വീഴും കൂടുതൽ വിവിരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

എസ് എസ് പ്രവർത്തകൻ നന്ദു വെട്ടേറ്റുമരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവരുടെ വേരുകൾ കണ്ടെത്തുന്ന തരത്തിൽ ഫലപ്രദമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ നീതികിട്ടാൻ കേന്ദ്ര ഏജൻസികൾ ഇടപെടുമെന്ന് ബി

പി നേതാവ് കുമ്മനം രാജശേഖരൻ ചേർത്തലയിൽ പറഞ്ഞു നന്ദുവിന്റെ വയലാറിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരപ്രവർത്തനം നടത്തുന്നവരാണ് അക്രമത്തിന് പിന്നിലെന്നും കുമ്മനം ആരോപിച്ചു ദേദ ഇന്ധന വില ഇന്നും വർധിച്ചു

ദര വിവാദമായ പാലാരിവട്ടം പാലത്തിന്റെ ലോഡ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും

നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധിക്ക് മുമ്പ് പാലത്തിന്റെ പുനർ നിർമ്മാണം ഏകദേശം പൂർത്തിയായ സാഹചര്യത്തിലാണ് ലോഡ് ടെസ്റ്റ്

ഹർത്താൽ അനുകൂലികൾ കൊല്ലം ജില്ലയിലെ വാടി ഫിഷ്ലാൻഡിങ് സെന്റർ ഉപരോധിച്ചത് ചെറിയതോതിൽ സംഘർഷത്തിനിടയാക്കി പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചു ദേദ കണ്ണൂർ ചെറുതാഴം ശ്രീ രാഘവപുരം സഭാ യോഗത്തിന്റെ നേതൃത്വത്തിൽ ചെറുതാഴത്ത് മഹാദേവ ഭജനവും ശാസ്ത്ര വിചാര സത്രവും ഇന്നാരംഭിക്കും

ദേദ മഞ്ഞപ്പിത്ത കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി രോഗം റിപ്പോർട്ട് ചെയ്ത പുറത്തേക്കാട് പ്രദേശത്തെ വീടുകളും കടകളും സന്ദർശിച്ച് ബോധവത്ക്കരണം നടത്തി കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്തു